രാജ്യത്തെ വിവിധ്യപ്രപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന എട്ട് ട്രെയിനുക്കൾ പ്ര്ധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

എസ് എൽ

സിയെ സമനിലയിൽ തളച്ച് ഹൈദരാബാദ്

രാജ്യത്തുടനീളം നടന്ന കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് വിജയകരമായിരുന്നെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ഡോ

കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ഡൽഹി എംയിംസ് ആശുപത്രിയിൽ ശൂചീകരണ തൊഴിലാളി മനീഷ് കുമാറിന് ആദ്യ വാക്സിൻ നൽകിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞത്തിന് ഇന്നലെ തുടക്കം കുറിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പിനു ശേഷം എന്തെങ്കിലും അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിൽ പ്രവേശിച്ച കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രലയം അറിയിച്ചു

പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് അംഗീകാരം ലഭിച്ച കോവിഷീൽഡ് വാക്സിനും കോവാക്സിനും വിതരണം ചെയ്തത് മറ്റു സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്സിൻ മാത്രമാണ് വിതരണം ചെയ്തത് കേരളത്തിൽ കോവിഷീൽഡ് വാക്സിനാണ് കുത്തിവെച്ചത് അസം ബിഹാർ ഹരിയാണ കർണാടക ഒഡീഷ രാജസ്ഥാൻ മഹാരാഷ്ട്ര തമിഴ്നാട് തെലങ്കാന ഉത്തർപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് രണ്ട് വാക്സിനുകളും കുത്തിവെച്ചത് കേരളത്തിൽഏറ്റവും കൂടുതൽ പേർ വാക്സിൻ സ്വീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ്

കോവിഡ് മുന്നണി പോരാളികൾക്കാണ് രാജ്യത്ത് ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത് ആദ്യ ഘട്ടത്തിൽ മുണ്ണ് കോടി പേർക്ക് ഇന്ത്യ കുത്തിവയ്പ്പ് നൽകുമെന്ന് പ്രധാനമന്ത്യി ന്ദേന്ദ്രമോദി വൃക്തമാക്കി

ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടിയാണ് രാജ്യത്ത് ആരംഭിച്ചിട്ടുളളതെന്നും ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനുളള പരിചയം ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പോളിയോ വസൂരി പോലുള്ള രോഗങ്ങളെ ഉന്മൂലനം രാജ്യം കോവിഡിനെതിരെയുളള പോരാട്ടത്തിൽ രാജ്യം നിർണ്ണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണെന്നും ഹർഷവർധൻ പറഞ്ഞു

ഗുജറാത്ത് ചെന്നൈ എന്നിവിടങ്ങളിൽ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും

രാജ്യത്തെ ആദ്യ ഹരിത കെട്ടിട സെർട്ടിഫിക്കേഷൻ ലഭിച്ച സ്റ്റേഷനാണ് കേവാദിയ

ഇന്ത്യയെ സ്റ്റാർട്ടപ്പുകളുടെ മുൻനിര കേന്ദ്രമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വീഡിയോ കോൺഫറൻസിംഗിലൂടെ പുതുസംരംഭകരുമായി സംവദിച്ചു ശ്രീ മോദി രാജ്യത്തെ യുവ്വാക്കളുടെ ഊർജ്ജവും സ്വന്തം ഭാവി നിർണ്ണയിക്കാനുള്ളൂ അഭിനിവേശവും പുതിയ സാധ്യതകൾ തുറക്കുന്നതായും ക്ടുണ്ട്ട്ക്കാട്ടി

ആകെ പോസിറ്റീവ് കേസുകളുടെ രണ്ട് ശതമാനം മാത്രമാണ് നിലവിൽ ചികിത്സയിൽ ഉള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രലയം അറിയിച്ചു

തിയറ്ററുകളിൽ നിരീക്ഷണം ശക്തമാക്കാനും പൊലീസ് തീരുമാനിച്ചു

ഏതെങ്കിലും രീതിയിലുള്ള അപകടം നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗപ്പെടുത്താമെന്നും അതുവഴി അടുത്തുള്ള അഗ്നി ശമന സേനാംഗങ്ങളുടെ സഹായം എത്രയും വേഗം ലഭൃമാകുമെന്നും അഗ്നിശമനസേന വ്യക്തമാക്കി

ഹൈബ്രിഡ് രീതിയിൽ നടക്കുന്ന മേള ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കംകുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇന്നലെ ആകാശവാണി സംവാദ പരിപാടിയിൽ പങ്കെടുത്ത റവന്യൂ സെക്രട്ടറി എം എസ് മനിവണ്ണനാണ് ഇക്കാര്യം അറിയിച്ചത്

രോഗ പ്രരിദ്യോധത്തിനായി ശക്തമായ മുൻകരുതലുകൾ സ്വീകരിക്ക്ണൂമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രറ്റു്തു

നിയന്ത്രിക്കുന്നതിലും കലാപകാരികളെ കലാപം നേരിടുന്നതിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലും ദ്രുത കർമ്മ സേനയുടെ പങ്ക് നിർണ്ണായകമാണെന്ന് ആഭ്യന്തരമന്ത്രി അനുസ്മരിച്ചു

സിയെ സമനിലയിൽ തളച്ച് ഹൈദരാബാദ് എഫ്